നീട്ടി

കോവിഡ് സന്നദ്ധ സംഘടനാ് പ്രതിനിധികളുമായി സംവദിക്കും ഗ്ലോബൽ ഇന്ത്യാ വീക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ശതമാനത്തിലേയ്ക്ക്

തിരുവനന്തപുരം സ്വർണ കള്ളക്കടത്ത് കേന്ദ്ര ഏജൻസികൾ സമഗ്രമായി അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ

അംഗത്തിനും അഞ്ച് കിലോ അരി പ്രഅ്ല്ലെങ്കിൽ ഗോതമ്പ് ഒരു കിലോ കടല പരിപ്പ് എന്നീവു സൌജന്യമായി ലഭിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ ്ട് വിവരിച്ച് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞുകൃ തൃപ്പംബർ അവസാനം വരെ പദ്ധതി നീട്ടാനാണ് തീരുമാനം

രാജ്യത്ത് പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കിയിരുന്നു കാലവർഷക്കാലത്തും ഉത്സവ സമയത്തും സൌജന്യ ഭക്ഷ്യധാന്യം എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഇ പി എഫ് വിഹിതം മൂന്നു മാസം കൂടി സർക്കാർ ലഭ്യമാക്കും

ഇതനുസരിച്ച് കിടക്കമുറി ഫ്ളാറ്റുകൾ ഏക്ടദേശം മൂന്നരലക്ഷം പേർക്ക് വിതരണം ചെയ്യും

അടച്ചിടൽ കാലത്ത് ഭക്ഷ്യ വിതരണത്തിനും മറ്റ് ആശ്വാസ നടപടികൾക്കും മുന്നിട്ടിറങ്ങിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും

ആത്മ നിർഭർ ഭാരത് പദ്ധതിയുടെ അവതരണവും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്

നിലവിലുള്ള സർവ്വീസ് മതിയാകാത്ത റൂട്ടുകളിൽ സ്വകാര്യ സർവീസുകൾ ആരംഭിക്കും

പുതിയ സാങ്കേതിക വിദ്യ സമയലാഭം തൊഴിൽ സാധ്യത സുരക്ഷ ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാ സൌകര്യം തുടങ്ങിയവയാണ് സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നത് എൻഞ്ചിൻ ഡ്രൈവറും ഗാർഡും റെയിൽവേയുടെ ജീവനക്കാരാണ്

സാമൂഹ്യ അകലം പാലിച്ചും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുമാണ് നിർമാണം പൂർത്തിയാക്കിയതെന്ന് റെയിൽവേ അറിയിച്ചു

ഉത്തരേന്തൃയിലെ ശീതകാലത്തും ഉപയോഗിക്കാനാവും

പ്രതിദിനം ഒരു ലക്ഷം വീതം ഒരു കോടി പേർ ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചു

അതിനിടെ കോവിഡ് പരിശോധനാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്ന് ഐ സി എം ആർ അറിയിച്ചു

കടുത്ത നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികളുമായി സഹകരിക്കണമെന്ന് ആശുപത്രി അധികൃതർ അഭ്യർത്ഥിച്ചു

ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയ്ക്ക് ഒഴിഞ്ഞുനിൽക്കാനാകില്ലെന്നും കേന്ദ്ര മൂന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഇന്നലെ രാത്രി ഒമ്പതിന് വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോറയിലാണ് സംഭവം